അസ്റ്റമിലും വിവിധ വികസന പരിപാടികൾക്ക് തുടക്കം കുറിക്കും

യുവ സംരംഭകത്വ പുരസ്കാരങ്ങൾ ഇന്ന് ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും

ഒന്നാം ഇന്നിംഗ്സ് ഡിക്റ്റയർ ചെയ്തു

മണിപ്പൂരിൽ നിരവധി സംസ്ഥനങ്ങൾ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും വിശദാംശങ്ങളുമായി ഗോപകുമാർ

ഐ ഗോഡൌൺ തങ്കൾ സുരുങ്കിലെ എക്കോ ടൂറിസം കോംപ്പക്സ് നിരവധി ജല വിതരണ പദ്ധതികൾ എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

യൂണിവേഴ്സിറ്റിയിലെ അടിസ്ഥാന സൌകരൃ വികസന പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മവും ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കും തുടർന്ന് സിൽച്ചാറിൽ പ്രധാനമന്ത്രി പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

ഗവൺമെന്റിന്റെ കിഴക്കനേഷ്യൻ നയത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രഭ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്

ഭൂമി തർക്കം സംബന്ധിച്ചു കേസിലാണ് വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൌയ് ജസ്റ്റിസ് എസ്

പുരസ്കാര സമർപ്പണത്തിന്റെ മൂന്നാം പതിപ്പിനാണ് ഇന്ന് ന്യൂഡൽഹി ആതിഥ്യമരുളുന്നത് സംരംഭകത്വ മേഖലയിൽ വൃക്തിമുദ്ര പതിപ്പിച്ച പുതിയ സംരംഭകരെ ആദരിക്കുകയാണ് ലക്ഷ്യം

വനിതകൾ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭ്യഗ്ഗങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പ്രത്യേക പുര്സ്കാരങ്ങൾ നൽകും

തന്റെ തീരുമാനത്തിന്റെ കാരണം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്ന് ശ്രീ ഫൂൽക്ക പറഞ്ഞു ആം ആദ്മി പാർട്ടി എം എൽ എ ആയിരിക്കേയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ സിഖ് ശ്രീ ഫൂൽക്ക വിരുദ്ധ കലാപത്തിലെ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് രാജി തീരുമാനം പ്രഖ്യാപിച്ചത്

പി ആർ എസ് എസ്

ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കേണ്ട സമര പ്രചാരണ പരിപാടികളെ കുറിച്ച് യോഗം ചർച്ച ചെയ്യും

അതിനു ശേഷം ബി ജെ

ജില്ലാ അധ്യക്ഷൻമാരുടെ യോഗവും ചേരും

ദക്ഷിണേന്തൃയിൽ നിന്നുളള എം

അരുൺ തികഞ്ഞ ചുമതലാബോധമുള്ള സ്ഥാപനമാണ് ട്രൈബ്യൂണലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു മോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ഇതിന് ഏറെ സഹായകരമായി

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും വിനയ് സഹസ്രാബുദ്ദെയുമാണ് മധ്യപ്രദേശിലെ നിരീക്ഷകർ രാജസ്ഥാനിൽ കേന്ദ്രമന്ത്രി അരുൺജെയ്റ്റ്ലി എ ആർ ഖന്ന എന്നിവരും ഛത്തീസ്ഗഡിൽ കേന്ദ്രമന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ട് അനിൽ ജയിൻ എന്നിവും നിരീക്ഷകരായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും പാർട്ടി സീനിയർ നേതാവുമായ ജെ പി നദ്ദ അറിയിച്ചു

കയറിയ ലോകത്തെ ആദ്യത്തി വനിതാ അംഗവിഹീനയാണ് അരുണിമ വിജയത്തിന്റെ കൊടുമുടിയിലാണ് അരുണിമയെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു രാജ്യത്തിന്റെ അഭിമാനമായ അരുണിമ കഠിനാധാന്നവും ക്ഷമയും കൈമുതലാക്കിയാണ് ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയത്

വിശദാംശങ്ങളുമായി ഗോപകുമാർ

ദീർഘദൃഷ്ടിയോടെ ആവിഷ്കരിച്ചതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെന്ന് ലോകാരോഗൃ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അധാനം ഖ്യബയേസസ് ടിറ്ററിൽ അറിയിച്ചു

ഡൽഹി തെലങ്കാന ഒഡീഷ എന്നിവ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഋഷഭ് പന്തിന്റെ കരിയറിലെ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയാണിത്

ഓസ്ട്രേലിയയുടെ ഒന്നൂറ്റ് ഇന്നിംഗ്സ് തുടങ്ങി

എതിർ സ്ഥാനാർത്ഥിയായ ബി

പിയുടെ ബൽവന്ത് സിംങിന്റെ പരാതിയിലാണ് നടപടി

ലോക്പാൽ നിയമനം വേഗം നടത്താൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ടു പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവേയാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത്

പുതിയ നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷയെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുമെന്ന് എഫ്